കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു

അഞ്ച് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ്

രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം മൂന്നിനും മൂന്നാം ഘട്ടം ഏഴിനുമാണ് നടക്കുക

കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ കൂടുതൽ യ്യോജിപ്പോടെ മുന്നേറാൻ യോഗം തീരുമാനിച്ചു

ജയശങ്കറിന്റെ അദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യ നൽകുന്ന വൈദ്യസഹായത്തിന് കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ രജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ നന്ദി പറഞ്ഞു ഗതാഗതം ഊർജ്ജം ഐ ടി ആരോഗൃസംരക്ഷണം വിദ്യാഭ്യാസം കൃഷി എന്നീ മേഖലകളിൽ മുൻഗണനാ വികസന പദ്ധതികൾക്കായി നൂറുകോടി ഡോളറിന്റെ വായ്പാ അവസരം ഇന്ത്യ മുന്നോട്ടുവച്ചതിനെ മന്ത്രിമാർ സ്വാഗതം ചെയ്തു

വ്യാപാര സാമ്പത്തിക സഹകരണം കൂടുതൽ വിപുലമാക്കേണ്ടതിന്റെ പ്രാധാന്യം യോഗം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി

മധ്യ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന് പ്രധാന വഴിയൊരുക്കുന്ന ഇറാനിലെ ചബഹർ തുറമുഖത്തിന്റെ ആധുനിക വൽക്കരണത്തിന് ഇന്ത്യ നടത്തുന്ന പരിശ്രമത്തെ യോഗം അഭിനന്ദിച്ചു എല്ലാ തരത്തിലുമുള്ള ഭീകരതയെ അപലപിച്ച യോഗം സ്വന്തം മണ്ണ് മറ്റൊരു രാജ്യത്തിനെതിരായ ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ലെന്ന് ഓരോ രാജ്യവും ഉറപ്പാക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ സൈനിക കമാൻഡർമാരുടെ സമ്മേളനത്തെ അഭിസ്സംബോധന ചെയ്യുക യായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യലബ്സിക്ക് ശേഷം ഉയർന്നുവന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നത്തിൽ സൈനൃം വിജയിച്ചിട്ടുണ്ടെ ന്നും സേനയുടെ നവീകരണത്തിന് ആവശ്യമായ എല്ലാ സൌകര്യ ങ്ങളും ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു നവീകരണത്തിലൂടെ എല്ലാ മേഖലകളിലും നേട്ടം കൈവരിക്കാൻ സൈനൃത്തിന് സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഇതിന്റെ ഭാഗമായി കൂട്ടുതിൽ സ്ഥലങ്ങളിലേക്ക് വിമാനങ്ങളും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള താ്ൽക്കാലിക വ്യോമപാത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദ്ദീപ് സിങ് പുരി അറിയിച്ചു

പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രതിനിധി ഡൽഹി ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിലെ സാങ്കേതിക വിദഗ്ദ്ധർ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന എന്നിവരടങ്ങുന്നതാണ് കമ്മിഷൻ

സമൂഹ മാധ്യമങ്ങൾ വഴി പോസ്റ്റ് ചെയ്യുന്ന അഭിപ്രായങ്ങളിൽ കമ്പനിയെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കുന്ന നിയമത്തെ അനുകൂലിച്ചാണ് ഇവർ സംസാരിക്കുക

പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി ദിനത്തിൽ വിശ്വാസികൾ പ്രവാചക പ്രകീർത്തനങ്ങളിൽ മുഴുകും പുലർച്ചെ പള്ളികളിലും വീടുകളിലും മുഹമ്മദ് നബിയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്ന മൌലിദ് പാരായണവും പ്രത്യേക പ്രാർഥനകളും നടന്നു കൊവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ മദ്റസാ തലത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും മത്സരങ്ങളും ഇത്തവണ ഓൺലൈനായാണ് നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസികൾക്ക് നബിദിന ആശംസകൾ നേർന്നു

കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്പ്കാര്മാണ് അറസ്റ്റ് ഏകദേശം ആറ് മണിക്കൂറിലധികം ചോദ്യു് ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്

എന്നാൽ ചരക്കു വിമാനങ്ങളും സർക്കാർ അംഗീകൃത യാത്രാ വിമാനങ്ങളും സർവ്വീസ് നടത്തും

ഇന്ത്യയിൽ നിന്നുപോയ ചില യാത്രക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വിലക്ക്

ഏത് സാഹചര്യത്തിലും ഒരു കാരണത്താലും ഭീകരത്രിയ് ന്യായീകരിക്കാനാവില്ല അതേസമയം ഫ്രഞ്ച് പ്രസ്മിൿന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരായ വ്യക്തിപരമായ അധിക്ഷേപ്പങ്ങളെ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു

എൽ ക്രിക്കറ്റിൽ ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ അഞ്ച് വിക്കറ്റുകൾക്ക് മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തി

ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും

മലയോര മേഖലയിലുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം

ഇന്നത്തെ കാർട്ടർ ഫൈനലിൽ ഓസ്ട്രേലിയയുടെ മാക്സ് പർസൽ ലൂക് സാവില്ലെ സഖ്യത്തെ ദിവിജും ബാംബ്രിഡ്ജും നേരിടും